ഐ

ടി ഗുവാഹത്തിയിലെ ബിരുദ ദാന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

റാബി വിളകൾക്ക് താങ്ങുവിലയിൽ പ്രർദ്ധന പ്രഖ്യാപിച്ച് കേന്ദ്രം

കോവിഡ് മുക്തി നിരക്കിൽ രീജ്യം ഒന്നാം സ്ഥാനത്ത് ന് കേരളത്തിൽ ഇന്നലെ കൂടുതൽ ്പേർക്ക് രോഗമുക്തി

ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത

ഐ

ഇറ്റാലിയൻ ഓപ്പൺ പുരുഷവിഭാഗം ടെന്നീസ് കിരീടം നൊവാക് ജോക്കോവിച്ചിന്

ഐ ടി യുടെ ബിരുദ ദാന ചടങ്ങിനെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

ബിടെക് എം

അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പ്രൊഖ്രിയാൽ നിഷാങ്ക് സഹമന്ത്രി സഞ്ജയ് ദോത്രെ തുടങ്ങിയവർ പങ്കെടുക്കും വിർച്ചൽ റിയാലിറ്റി സംവിധാനത്തിലൂടെയാണ് ഐ

ടി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്

പ്രധാന മന്ത്രി നരേന്ദ്ര് മോദിയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള് മുന്തിസഭാ സമിതിയുടേതാണ് തീരുമാനം

മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നതിനായി ഏഴ് ലക്ഷം കോടിയോളം രൂപ ആറുവർഷത്തിനിടെ കർഷകർക്ക് നൽകിയതായി കൃഷിമന്ത്രി പറഞ്ഞു

സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾക്ക് അനുസൃതമായി നടപ്പാക്കിയ വർദ്ധന സർക്കാരിന്റെ പ്രതിബദ്ധത വെളിവാക്കുന്നതാണ്

പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകൾ മിനിമം താങ്ങുവിലയെ ഒരു തരത്തിലും ബാധിക്കില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബിൽ പാസായതുമുതൽ ഉയരുന്ന വിരുദ്ധ അഭിപ്രായങ്ങൾ കർഷകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാനാണ് പ്രചാരണം ബില്ലിനെ സംബന്ധിച്ച വിശദാംശങ്ങളും കാർഷിക മേഖലയിലുണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയെ കുറിച്ചും പ്രചാരണ പരിപാടിയിലൂടെ കർഷകരെ ബോധ്യപ്പെടുത്തുമെന്നും ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ അശ്വനി ശർമ്മ പറഞ്ഞു

കഴിഞ്ഞ രാത്രി അവതരിപ്പിച്ച ബിൽ ലോക്സഭ ശബ്ദ വോട്ടോടെ പാസ്സാക്കി

ആരോഗ്യപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം കുറ്റകരവും ജാമ്യമില്ലാ വകുപ്പിൽ ഏർപ്പെടുത്തുന്നതും പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുന്നു

പകർച്ചവ്യാധിയ്ക്ക് എതിരെ പൊരുതുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതും രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രസർക്കാരിന്റെ അധികാരങ്ങൾ വിപുലീകരിക്കുന്നതുമാണ് പുതിയ ബിൽ

കർഷകർക്ക് തങ്ങളുടെ ഡ്രി്ളകൾളുടെ ചിത്രം ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യാനാവും

മുംബൈയിലെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന യോഗത്തിൽ ആപ്പിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിലയിരുത്തി

സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന് അനുസൃതമായാണ് ടെൻഡർ നടപടി ആത്മനിർഭർ ഭാരതിന്റെ ചട്ടക്കൂടിൽ നിന്നുള്ള ആദൃത്തെ വലിയ ടെൻഡറാണിതെന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞു

കോവിഡ് രോഗമുക്തി നിരക്കിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ്

ഏറ്റവും കൂടുതൽ രോഗബാബാധിതരുള്ള മഹാരാഷ്ട്രയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം മൂന്നുലക്ഷത്തോട് അടുക്കുന്നു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കനത്ത മഴ തുടരുന്നതിനാൽ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദേശിച്ചു

എല്ലിലെ തങ്ങളുടെ ആദ്യ മൽസരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയം

ഫൈനൽ മത്സര്ത്തിനിടെ പരിക്കിനെ തുടർന്ന് ചെക്ക് താരം കരോലിന പ്ലിസ്കോവ പിൻമാറിയതോടെയാണ് സിമോണ ജേതാവായത്

അടുത്തയാഴ്ചയാണ് ഇത്തവണത്തെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നിസ് ടൂർണമെന്റിന് തുടക്കം

നടപടി പ്രകൃതിരമണീയമായ ബസ്താർ മേഖലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രി ഹർദ്ദീപ് സിങ് പുരി വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു

കോൺഗ്രസ്സിലെ രവി രാജയെ പ്രതിപക്ഷ നേതാവായി നിയമിച്ച മേയർ കിഷോരി പഡ്നേക്കറുടെ തീരുമാനം കോടതി ശരിവച്ചു